വുഹാൻ ഉച്ചകോടി ഇന്ത്യയും ചൈനയും തമ്മിൽ അടുത്ത ബന്ധം തുടരുന്നതിൽ സ്വാധീനം ചെലുത്തുന്നതായി ചൈനീസ് പ്രസിഡന്റ് ഷീജിൻപിങ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം വർഗീയ കാർഡിറക്കി വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടത്തായി കേസമ്പേഷണം വെല്ലുവിളി നിറഞ്ഞതാണെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ കേരളബാങ്ക് വികസനക്കുതിപ്പിന്റെ അഭിമാനമായി മാറുമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് ഹോളി ഫാമിലി സന്യാസിനി സമൂഹ സ്ഥാപക മറിയം ത്രേസ്യയെ നാളെ മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിക്കും ദേശീയ ലോക് അദാലത്ത് പുരോഗമിക്കുന്നു

ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്ങ്സിൽ ദക്ഷിണാഫ്രിക്ക പതറുന്നു ള ൽ ൾ ഇന്ത്യ ചൈന സഹകരണത്തിന്റെ പുതുയുഗത്തിന് ചെന്നൈ ബന്ധം തുടക്കം കുറിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വുഹാൻ ഉച്ചകോടി ഇന്ത്യയും ചൈനയും തമ്മിൽ അടുത്ത ബന്ധ ം തുടരുന്നതിൽ സ്വാധീനം ചെലുത്തുന്നതായി ചൈനീസ് പ്രസി ഷീജിൻപിങ്ങും അഭിപ്രായപ്പെട്ടു

ഇരുരാജൃങ്ങളും ഏറെകാലമായി കാത്തിരുന്ന ഉന്നതതല ചർച്ച പുരോഗമിക്കുകയാണ് ചർച്ചയിൽ വിദേശകാര്യ മന്ത്രി ഡോ

ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഖോഖലെ എന്നിവരും പങ്കെടു ക്കുന്നുണ്ട്

അരമണിക്കൂറോളം കടൽതീ രത്ത് ചെലവഴിച്ചു അദ്ദേഹം അവിടെ നിന്ന് എടുത്ത് മാറ്റിയ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും താമസിച്ച് ഹോട്ടലിലെ ജിവനക്കാരന് കൈമാറിയതായി മോദി ട്വിറ്ററിൽ അറിയിച്ചു പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും ആരോഗൃത്തെകുറിച്ച് ബോധ വാൻമാരായിരിക്കണമെന്നും മോദി ടിറ്ററിൽ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം വർഗീയ കാർഡിറക്കി വോട്ടുപി ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മഞ്ചേശ്വരത്ത് എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഞ്ചേശ്വരത്തെ എൽ

എഫ് സ്ഥാനാർത്ഥിയെ കപടഹിന്ദു എന്ന് വിളിച്ച പ്രതിപക്ഷ നേതാവ് അൽപ്പത്തരമാണ് പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ജെ പിക്കെതിരെ ഭയപ്പാടിന്റെ രാഷ്ട്രീയം വളർത്താനാണ് എൽ

എഫും യു

എഫും ശ്രമിക്കുന്നതെന്ന് ബി

പി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള പറഞ്ഞു കോന്നിയിൽ തെര ഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നുഅദ്ദേഹം

ഡി

എസിനെ എൽ ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തിട്ടി ല്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണൻ കോന്നിയിൽ പറഞ്ഞു

ഡി

എസ് എൻ ഡി എ വിട്ടു വന്നാൽ അപ്പോൾ ആലോചിക്കുമെന്നും എൻ

എസ് അടക്കം സമുദായ സംഘടനകളോട് യാതൊരു വിരോധവും എൽ ഡി എ ഫിന് ഇല്ലെന്നും കോടിയേരി അറിയിച്ചു കൂടത്തായി കേസ് അന്വേഷണം വെല്ലുവിളി നിറഞ്ഞതാണെന്ന് ഡി ജി

എന്നാൽ അസാധ്യ മായി ഒന്നുമില്ലെന്നും പ്രഥമിക അന്വേഷണത്തിൽ തൃപ്തനാണെ ന്നും അദ്ദേഹം വടകരയിൽ പറഞ്ഞു സാക്ഷികളില്ലാത്തതിനാൽ ശാസ്ത്രീയതെളിവുകളും സാഹചര്യതെളിവുകളും കൂടുതലായി ശേഖരിക്കേണ്ടതുണ്ടെന്നും ഡി ജി പി അറിയിച്ചു

ഇക്കാര്യത്തിൽ നിയ മവിദഗ്ധരുമായി ചർച്ച നടത്തിയതായി ഡി ജി പി പറഞ്ഞു വിവിധ സാമ്പിളുകൾ പലയിടങ്ങളിൽ പരിശോധന നടത്തേണ്ടി വരും കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ കോടതിയിൽ തെളിവുകൾ സമർപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്താൻ രാവിലെയാണ് ഡിജിപി എത്തിയത് കൂടത്തായിയിലെ കൊലപാതകങ്ങൾ നടന്ന പൊന്നാമറ്റം വീട് അദ്ദേഹം സന്ദർശിച്ചു വീട്ടിൽ പരിശോധന നട ത്തിയ ശേഷം അന്വേഷണ തലവൻ വടകര റൂറൽ എസ് പി കെ

പി പങ്കെടുത്തു

ഉത്തർപ്രദേശിലെ ഉന്നാവിൽ പീഡനത്തിനിരയായ പെൺകുട്ടി ദുരൂഹ വാഹനാപകടത്തിൽപെട്ട കേസിൽ സി ബി ഐ കോടതി യിൽ ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകിയേക്കും കേസന്വേഷണം അവ സാനിപ്പിക്കാൻ സുപ്രീംകോടതി നീട്ടി നൽകിയ സമയം അവസാ നിക്കുന്ന സാഹചര്യത്തിലാണിത് പെൺകുട്ടിക്കും കുടുംബത്തിനും ഡൽഹിയിൽ താമസിക്കാൻ ഒരാഴ്ചയ്ക്കകം വാടകവീട് ഒരുക്കു മെന്ന് ഡൽഹിയ വനിതാ കമ്മീഷൻ പ്രത്യേക കോടതിയെ അറി യിച്ചു കൂടുംബത്തിന് വീട് വാടകയ്ക്ക് നൽകാൻ ഉടമകൾ തയാ റാകാത്തതിനെ തുടർന്നാണ് കോടതി കമ്മീഷന്റെ സഹായം തേടി യത് എയിംസ് ആശുപത്രിയിലെ ഹോസ്റ്റലിലാണ് ചികിത്സയെ തുടർന്ന് ആരോഗ്യ സ്ഥിതി മെച്ചപ്പെട്ട പെൺകുട്ടിയും കുടുംബവും ഇപ്പോൾ കഴിയുന്നത് കേരളബാങ്ക് കശ്മീർ ബാങ്ക് പോലെ വികസനക്കുതിപ്പിന്റെ അഭി മാനമായി മാറുമെന്ന് മന്ത്രി ഡോ

നാടിന്റെ വികസനത്തിൽ സഹകരണ ബാങ്കു കൾ സജീവമായി ഇടപെടുന്നുണ്ടെന്നെങ്കിലും അവയ്ക്ക് പരിമിതി കൾ ഉണ്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഇന്നത്തേത് പോലെ നിലനിർത്തി മേൽത്തട്ടിലെ സംയോജനത്തിലൂടെ ഈ പരിമിതി കളെ മറികടക്കാനാവുമെന്ന് അദ്ദേഹം പറഞ്ഞു സംയോജനത്തെ തുടർന്ന് രൂപീകരിക്കുന്ന കേരള ബാങ്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കായി മാറുമെന്നും ഐസക് വ്യക്തമാക്കി മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കു ന്നത് തടയാൻ ശ്രമം തുടർന്നാൽ ആവശ്യമായ നടപടി സ്വീകരി ക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

പ്രതിപക്ഷത്തെ വിശ്വാസത്തി ലെടുത്ത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കുമെന്നും ഇതിനായി ചർച്ചകൾക്ക് ഗവൺമെന്റ് തയാറാ ണെന്നും മന്ത്രി പറഞ്ഞു തുടക്കം മുതൽ കേരളബാങ്കിനെ എതിർക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാക്കൾ സ്വീകരിച്ച തെന്നും കടകംപള്ളി കുറ്റപ്പെടുത്തി കേരള ബാങ്ക് വരുന്നത് ജീവ നക്കാർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഹോളി ഫാമിലി സന്യാസിനി സമൂഹ സ്ഥാപക മറിയം ത്രേസ്യയെ നാളെ മാർപാപ്പ വിശുദ്ധയായി പ്രഖ്യാപിക്കും റോമിലെ മേജർ ബസലിക്കയിൽ പ്രത്യേക പ്രാർത്ഥനാശുശ്രൂഷയ്ക്കുശേഷമായി രിക്കും മറിയം ത്രേസ്യയ്ക്കൊപ്പം അഞ്ചുപേരെ വിശുദ്ധരായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുക ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് വിദേശകാര്യ സഹ മന്ത്രി വി മു രളീധരൻ നേതൃത്വം നൽകുമെന്ന് മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു

കേര ളത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലെത്തുന്ന നാലാമത്തെ ആളാണ് മറിയം ത്രേസ്യ

കോടതികളിൽ തീർപ്പാകാതെ കിടക്കുന്ന കേസുകൾക്ക് മധ്യസ്ഥ ചർച്ചയിലൂടെ പരി ഹാരം കണ്ടെത്താനാണ് ദേശീയ നിയമ സേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ലോക് അദാലത്ത് നടത്തുന്നത് കോടതികളിൽ പ്രത്യേക ബൂത്തുകളും സഹായ കേന്ദ്രങ്ങളും ഒരു ക്കിയിട്ടുണ്ട്

ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരുടെ പ്രയാസ ങ്ങൾ ഒഴിവാക്കുന്നതിന് പരിചരണം നൽകുകയാണ് സാന്ത്വന ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മേരികോമിന് വെങ്കലം മോസ്കോയിൽ ഇന്ന് സെമി ഫൈനലിൽ തുർക്കി താരം ബുസ്നാസ് കാക്കിരോ ഗ്ലൂവാണ് മേരികോമിനെ തോൽപ്പിച്ചത് ഇതോടെ ലോകചാമ്പ്യൻഷിപ്പിൽ എട്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മേരികോം മാറി ക്യൂബൻ ഇതി ഹാസ പുരുഷ ബോക്സർ ഫെലിക്സ് സാവോണിന്റെ ഏഴ് ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ എന്ന റെക്കോർഡാണ് മേരികോം മറികട ന്നത് പൂനെയിൽ ഇന്ത്യ ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക പതറുന്നു

തമിഴ്നാട് ഉൾപ്പെടുന്ന ശക്തമായ എ ഗ്രൂപ്പിലാണ് കേരളത്തിന്റെ സ്ഥാനം

പാലായിൽ സംസ്ഥാന ജൂനിയർ അത് ലറ്റിക് മീറ്റിനിടെ ഹാമർ ത ലയിൽ വീണ് പരിക്കേറ്റ വിദ്യാർഥി അഫീൽ ജോൺസണിന്റെ ആ രോഗ്യനില ഗുരുതരമാണെന്ന് കോട്ടയം മെഡിക്കൽ കോളജ് ആശു പത്രി അധികൃതർ അറിയിച്ചു തലയിൽ ആഴത്തിൽ മുറിവേറ്റ് തല ച്ചോറിന് കാര്യമായ ക്ഷതമേറ്റ അഫീലിനെ കഴിഞ്ഞ ദിവസം ഏഴു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നു

പാലാ സെന്റ് തോമസ് സ്കൂളിലെ പ്ലസ് വൺ വി ദ്യാർത്ഥിയായ അഫീൽ കായിക മേളയുടെ വളന്റിയറാ യിരുന്നു പാവറട്ടി എക്സൈസ് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി കൂടി കീഴടങ്ങി സിവിൽ എക്സൈസ് ഓഫീസർ ് ബെന്നിയാണ് പോലീസിൽ കീഴടങ്ങിയത് ഇതോടെ അഞ്ചുപേർ കേസിൽ അറ സ്റ്റിലായി ഒളിവിൽ കഴിയുന്ന പ്രിവന്റീവ് ഓഫീസർ വി

അതേസ മയം കേസ് സിബിഐ ഏറ്റെടുക്കും വരെ പൊലീസ് അന്വേഷണ നടപടി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു

പൊലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു

മുത്തങ്ങ പൊൻകുഴി പണിയ കോളനിയിലെ വിനീഷിനാണ് ഇന്നലെ രാത്രി ഏഴു മണിയോടെ പുലിയുടെ ആക്രമണത്തിൽ പരുക്കേറ്റത്